മുൻ മന്ത്രിയും കോൺഗ്സ് നേതാ വു മായിരുന്ന പി

സംസ്കാരം നാളെ രാവിലെ പേരാമ്പ്രയിലെ വീട്ടുവളപ്പിൽ

ലൈഫ് പദ്ധതി ഗുണഭോക്താക്കളുടെ പഞ്ചായത്ത്തല സംഗമം സംഘടിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണ റായി വിജയൻ ട്രക്ക് ലോറി ഡ്രൈവർമാർക്ക് മാർഗരേഖ തയാറാക്കുമെന്ന് മന്ത്രി എ

ശശീന്ദ്രൻ ബാലാകോട്ട് ആക്രമണത്തിന്റെ ഒന്നാം വാർഷികം ഇന്ന് കാസർകോട് പെരിയ കേന്ദ്ര സർവകലാശാലയിൽ കായിക വിക സനത്തിന് ഉയർന്ന പരിഗണന നൽകുമെന്ന് കേന്ദ്രമന്ത്രി രമേഷ് പൊക്രിയാൽ ൾ ൽ ൾ ഡൊണാൾഡ് ട്രംപിന്റെ സന്ദർശനം ഇന്തൃ അമേരിക്ക ബന്ധ ങ്ങളിൽ പുതിയ വഴി വെട്ടിതുറക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേ ന്ദ്രമോദി വിലയിരുത്തി ഉഭയകക്ഷി ബന്ധങ്ങൾ ശക്തിപ്പെടുത്താൻ അദ്ദേഹത്തിന്റെ വരവ് ഏറെ പ്രയോജനപ്പെട്ടതായി പ്രധാനമന്ത്രി ട്വിറ്റ റിൽ കുറിച്ചു ഇരു രാജൃങ്ങളിലെയും ജനതക്ക് ഇന്തൃ യുഎസ് സൌഹൃദം ഗുണപ്രദമാകുമെന്നും പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു ഇന്ത്യൻ സംസ്കാരത്തിന്റേയും ആതിഥ്യ മര്യാദയുടേയും രൂപമാ തൃക ഡോണാൾഡ് ട്രംപിനേയും പത്നിയേയും അത്ഭുതപ്പെടുത്തി യതായി പ്രധാനമന്ത്രി പറഞ്ഞു

രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ട്രംപിനു വേണ്ടി വിരുന്നു സൽക്കാരം ഒരുക്കിയിരുന്നു ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ അസം ഹരിയാ ന കർണാടക തെലങ്കാന മുഖ്യമന്ത്രിമാർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എസ്

ബോബ്ഡെ സേനാ് മേധാവി ബിപിൻ റാവത്ത് തുടങ്ങിയവരും വൃവസായ പ്രമുഖരും സംഗീതജ്ഞൻ എ

റ ഹ്മാനും വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തു ഡൽഹിയിൽ പൌരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട അക്രമ സംഭവങ്ങളിൽ പ്രഥമ വിവര റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊലീസിന് നിർദേശം നൽകണമെന്ന മുൻ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയുടെ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗ ണിക്കും സമാന ആവശൃം ഉന്നയിക്കുന്ന മറ്റ് രണ്ട് ഹർജികളും ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് പൌരത്വ നിയമ ഭേദഗതിയെ അനുകൂലിക്കുന്നവരും പ്രതികൂലി ക്കുന്നവരും തമ്മിൽ വടക്കുകിഴക്കൻ ഡൽഹിയിൽ ഇന്നലെയും സംഘർഷമുണ്ടായി ചാന്ദ്ബാഗ് ഭജൻപുര ഗോകുൽപുരി മോജ്പൂർ കർദംപുരി ജാഫറാബാദ് എന്നിവിടങ്ങളിൽ ഇരു വിഭാഗങ്ങളും പര സ്പരം ഏറ്റുമുട്ടി വാഹനങ്ങൾക്കും കച്ചവട സ്ഥാപനങ്ങൾക്കും അക്രമികൾ തീവെച്ചു ക്രമസമാധാന ചുമതലയോടെ എസ്

ശ്രീവാസ്തവയെ ഡൽഹി സ്പെഷ്യൽ കമ്മീഷണറായി ആഭ്യന്തര മന്ത്രാലയം നിയമി ച്ചു

സംഘർഷ പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു മുൻ മന്ത്രിയും പാർലമെന്റ് അംഗവും കോൺഗ്രസ് നേതാവു മായിരുന്ന പി ശങ്കരൻ കോഴിക്കോട്ട് അന്തരിച്ചു

രോഗബാധയെ തുടർന്ന് ഇന്നലെ രാത്രി കോഴി ക്കോട്ടെ എംവിആർ കാൻസർ സെന്ററിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം

ആന്റണി മന്ത്രിസഭയിൽ ആരോഗൃ ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്നു

കെഎസ്യുവിലൂടെ പൊതുരംഗ ത്തേക്ക് കടന്നുവന്ന അദ്ദേഹം കാലിക്കറ്റ് സർവ്വകലാശാല സിൻഡി ക്കേറ്റ് അംഗം യുണിയൻ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തി ച്ചു നിയമ ബിരുദധാരിയായ പി ശങ്കരൻ പേരാമ്പ്ര കോടതിയിൽ അഭി ഭാഷകനായും കുറച്ചുകാലം പ്രവർത്തിച്ചു മൃതദേഹം ഉച്ചക്ക് രണ്ട് മുതൽ നാലുവരെ കോഴിക്കോട് ഡിസിസി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കും വൈകീട്ട് പേരാമ്പ്രയിൽ എത്തിക്കുന്ന മൃതദേഹം നാളെ രാവിലെ പത്തിന് വീട്ടുവളപ്പിൽ സംസ്ക്കരിക്കും

ശങ്കരന്റെ മരണത്തിൽ അനുശോചിച്ച് കോൺഗ്രസ് ഇന്ന് കോഴി ക്കോട് ജില്ലയിൽ നടത്താനിരുന്ന പാർട്ടി പരിപാടികൾ മാറ്റിവെച്ചു ലൈഫ് പദ്ധതിയിൽ രണ്ട് ലക്ഷം വീടുകളുടെ പൂർത്തീകരണം പ്രഖ്യാപിക്കുന്ന അടുത്ത ശനിയാഴ്ച്ച സംസ്ഥാനത്ത് പഞ്ചായത്ത് തല ത്തിൽ ഗുണഭോക്താക്കളുടെ ഒത്തുചേരൽ സംഘടിപ്പിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദേശിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾ ഇതുസംബന്ധിച്ച നടപടിയെടുക്കണം ജില്ലാ കലക്ടർമാർക്കായി രിക്കും ഇതിന്റെ മേൽനോട്ടം തിരുവനന്തപുരത്ത് ജില്ലാ കലക്ടർമാ രുമായി വീഡിയോ കോൺഫറൻസിങ്ങിൽ സംസാരിക്കുകയായി രുന്നു മുഖ്യമന്ത്രി സംസ്ഥാനത്തെ പകൽ താപനില കൂടുന്ന സാഹചര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും ഇതുസംബന്ധിച്ച വിവരങ്ങൾ ജനങ്ങളിലെത്തിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ട്രക്ക് ലോറി ഡ്രൈവർമാർക്കായി തൊഴിൽവകുപ്പുമായി ചേർന്ന് മാർഗരേഖ തയ്യാറാക്കുമെന്ന് മന്ത്രി എ

അവി നാശി വാഹനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന റോഡ് സുരക്ഷാ അതോറിറ്റി യോഗത്തിലാണ് തീരുമാനമെ ടുത്തത് ഡ്രൈവറുടെ അശ്രദ്ധയും കണ്ടെയ്നർ വേണ്ട രീതിയിൽ വാഹനവുമായി ബന്ധിപ്പിക്കാത്തതുമാണ് അപകടകാരണമെന്ന് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിരുന്നു

ഇന്ത്യൻ വ്യോമസേനയുടെ ബാലാക്കോട്ട് ആക്രമണത്തിന്റെ ഒന്നാം വാർഷികം ഇന്ന്

ഒട്ടേറെ ജെയ്ഷെ മുഹമ്മദ് ഭീകരവാദികളും പരിശീലകരും മുതിർന്ന കമാന്റർമാരും ജിഹാദികളും ആക്രമണ ത്തിൽ കൊല്ലപ്പെട്ടു

ചൈനയിലെ കൊറോണ ബാധിത വുഹാനിലേക്ക് ഡൽഹിയിൽ നിന്ന് മരുന്നും മെഡിക്കൽ ഉപകരണങ്ങളുമായി ചരക്ക് വിമാനം ഇന്ന് യാത്ര തിരിക്കും മടക്കയാത്രയിൽ വുഹാനിൽ കഴിയുന്ന ശേഷി ക്കുന്ന ഇന്തൃക്കാരെ തിരികെ കൊണ്ടുവരുമെന്ന് വിദേശകാരൃ മന്ത്രാ ലയം ഡൽഹിയിൽ അറിയിച്ചു കാസർകോഡ് പെരിയ കേന്ദ്ര സർവകലാശാലയിൽ കായിക രംഗത്ത് കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് ഉയർന്ന പരിഗണന നൽകുമെന്ന് കേന്ദ്ര മന്ത്രി ഡോ

സർവകലാശാലയിലെ സ്കൂൾ ഓഫ് എഡ്യുക്കേ ഷനിൽ പൂർത്തിയാക്കിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന് കേന്ദ്രമന്ത്രി തറക്കല്ലിടു കയും ചെയ്തു

മാർച്ച് ഒന്നിന് പുലർച്ചെ അഞ്ചരക്ക് കലക്ട്രേറ്റ് മൈതാനിയിൽ നിന്ന് മാരത്തൺ ആരംഭിക്കും സംസ്ഥാന വനിതാ ശിശു വികസ്ന വകുപ്പ് സംഘടിപ്പിക്കുന്ന രണ്ട് ദിവസത്തെ ദേശീയ പോഷണ സമ്മേളനത്തിന് നാളെ തിരുവ നന്തപുരത്ത് തുടക്കമാകും

സൂക്ഷ്മ പോഷണ കുറവ് വെല്ലുവിളി കളും മുന്നോട്ടുള്ള പ്രയാണവും എന്ന ആശയത്തെ അടിസ്ഥാനമാ ക്കിയാണ് സമ്മേളനം

ദന്ത ചികിത്സാ മേഖലക്കും സമൂഹ ത്തിനും മികച്ച സംഭാവന നൽകിയ ഡോ

ജയിംസിന് കേരളാ ഡെന്റൽ കൌൺസിലിന്റെ പ്രഥമ ആജീവനാന്ത പുരസ്കാരം ചട ങ്ങിൽ മന്ത്രി സമ്മാനിക്കും അമ്പലപ്പുഴ ഹരിപ്പാട് റെയിൽവെ ഇരട്ടപ്പാതയിലെ സുരക്ഷാ പരിശോധന ഇന്ന് നടക്കും റെയിൽവെ ഡെപ്യൂട്ടി കമ്മീഷണർ എം മനോഹരന്റെ നേതൃത്വത്തിൽ രാവിലെ എട്ടുമണിയോടെ പരിശോ ധന ആരംഭിക്കും

ഇടുക്കി ചിന്നക്കനാലിനടുത്ത് അപ്പർ സൂര്യനെല്ലിയിൽ കാട്ടാന യുടെ ചവിട്ടേറ്റ് ഭിന്നശേഷിക്കാരനായ വയോധികൻ മരിച്ചു

അതിനിടെ ചിന്നക്കനാൽ പഞ്ചായത്തിൽ ജനവാസ മേഖല ഉൾപ്പെടെ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി ആന പാർക്ക് സ്ഥാപിക്കാൻ നടത്തുന്ന നീക്കം പിൻവലിക്കണമെന്നാവശൃപ്പെട്ട് രാവിലെ കോൺഗ്ര സിന്റെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണ്ണ നടത്തും ആരോഗ്യ കേരളം വയനാടിന്റെ രണ്ട് പദ്ധതികൾ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സ്വതന്ത്ര സിവിലിയൻ ബഹുമതിയായ സ്കോച്ച് അവാർഡ് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടു

കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിവർത്തന അവാർഡ് നിർണ്ണ യ കമ്മറ്റി ജൂറിയായി കോഴിക്കോട്ടെ ഡോ

ചന്ദ്രനെ തെരഞ്ഞെടുത്തു കേന്ദ്രസാഹിത്യ അക്കാദമി യുടേയും ഡൽഹി ആകാശവാണി നിലയിത്തിന്റേയും ദേശീയ പുര സ്കാരമടക്കം നിരവധി ബഹുമതികൾ ഡോ ചന്ദ്രൻ നേടിയിട്ടുണ്ട് കവിതയും ഗാനരചനയും ഒരേപോലെ കൊണ്ടുപോയ ബഹുമു ഖ പ്ര തി ഭ യാ യി രു ന്നു പി

ടി വാസുദേവൻ നായർ അനുസ്മരിച്ചു

ഭാസ്കരൻ പുരസ്കാരം കോഴിക്കോട്ട് കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാറിന് സമ്മാ നിച്ച് സംസാരിക്കുകയായിരുന്നു എം ടി

കളക്ട്രേറ്റ് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചെയർപേഴ്സൺ ചിന്താ ജെറോമിന്റെ നേതൃത്വത്തിലാണ് അദാലത്ത്

മൂന്ന് ദിവസത്തെ മേള ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ ദിനേശ്വർ ശർമ്മ ഉദ്ഘാടനം ചെയ്തു